പാക്കേജിന്റെ മൂന്നാം ഘട്ടം ഇന്ന് കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ചു പാക്കേജിൽ കാർഷിക രംഗത്തിനുൾപ്പെടെ വിപിധ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾ

തരത്തിലും ബാധിക്കില്ലെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവദേക്കർ

പടിഞ്ഞാറൻ കാലവർഷം ജൂൺ അഞ്ചോടെ കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

കാർഷിക രംഗത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ഒരു ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കാർഷിക വിഭവങ്ങൾ സംഭരിക്കാനുള്ള ശീതികരണ സംവിധാകൃഷ്ട്ർഖ്ല നിർമ്മിക്കാനും വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന്റിസ് ഇകര്യങ്ങൾ ഏർപ്പെടുത്താനുമാണിത് ചെറുകിട ഭക്ഷ്യോത്പന്ന സംരംഭങ്ങൾക്കായി പതിനായിരം കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരി്ക്കുള്മന്നും ശ്രീമതി നിർമല സീതാരാമൻ അറിയിച്ചു

ക്ഷീര സംസ്ക്കരണ മേഖലയ്ക്കായും ഇതിൽ നിന്ന് തുക നീക്കി വയ്ക്കും

മൂന്നുപേർക്ക് സമ്പർക്കത്തിലൂട്ടെയാണ് രോഗം പകർന്നത്

ദൌതൃത്തിന്റെ രണ്ടാംഘട്ടം നാളെ തുടങ്ങും കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ

ഇത്തവണ ഇന്തോനേഷ്യ തായ്ലൻഡ് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി അയർലൻഡ് കാനഡ ജപ്പാൻ നൈജീരിയ കസാഖിസ്ഥാൻ ഉക്രൈൻ കിർഗിസ്ഥാൻ ബെലാറസ് ജോർജിയ തജിക്കിസ്ഥാൻ അർമീനിയ എന്നിവിടങ്ങളിലേക്കും സർവ്വീസുണ്ടാകും

ഇതിന് പുറമെ ന്യൂഡൽഹി ബംഗളുരു മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ വിമാന സർവ്വീസുകൾ നടത്തുന്ന കാര്യം പരിഗണിനയിലാണെന്ന് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു

ഇത് വലിയ അപകടം ചെയ്യുന്നതാണെന്നും അതിനു തടയിടേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി

ഇതനുസരിച്ച് ജൂൺ അഞ്ചോടെ കാലവർഷം കേരളത്തിലെത്താനാണ് സാധൃത രാജൃത്ത് നാല് മാസം നീണ്ടു നിൽക്കുന്ന മൺസൂൺ കാലയളവിന്റെ തുടക്കമായാണ് കേരളത്തിൽ മഴയെത്തുന്നതിനെ കണക്കാക്കുന്നത്

കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ച ഹൈഡ്രോക്സി ക്ലോറോകിനും പാരസറ്റമോളിനും വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യമുയർന്നു മാറുന്ന ലോകത്ത് ഇന്ത്യയുടെ വിദേശ നയം എന്ന വിഷയത്തിൽ നാഷണൽ ഡിഫൻസ് കോളേജിൽ ഓൺലൈനിലൂടെ പ്രഭാഷണം നടത്തുകയ്ക്കുയിട്ടുയിരുന്നു ശ്രീ

സർക്കാരിന്റെ വിവിധൃപ്പ്കുപ്പുകളും വിവിധ സ്വകാര്യ മരുന്നുത്പാദന കമ്പനികളു്ട് ്ടുത്തൊരുമിച്ച് പ്രവർത്തിച്ചതിലൂടെ ആവശ്യമുള്ളൂ് മരുന്നുകൾ വിവിധ രാജ്യങ്ങളിലെത്തിക്കാനായി രാജ്യത്തെ ചികിത്സാ വൈദഗ്ധ്യം തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഴ്പൂല് മുഴുവനായും എത്തിക്കുന്നുണ്ടെന്നും വ്വീദ്ദേശ്കാരൃ സെക്രട്ടറി പറഞ്ഞു ഇക്കാലയളവിൽ പ്രധാന്റുക്ടുതി നരേന്ദ്ര മോദിയുടെ രാജ്യ തന്ത്രജ്ഞത പരക്കെ അംഗീകരിക്കപ്പെട്ട്ീട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ലോകബാങ്ക് മൊത്തം രണ്ട് ബില്യൺ ഡോളറാണ് നൽകുക